ഉൾപ്പെടെയുളള രേഖകൾ ആവശ്യപ്പെടില്ലെന്ന് കേന്ദ്രം

ഇന്ത്യൻ താരം സുനിൽകുമാർ സ്വർണ്ണമെഡൽ റൌണ്ടിൽ

രജിസ്ട്രേഷന്റെ ഭാഗമായി ചോദ്യാവലി ഉൾപ്പെട്ട ഫാറം ഉടൻതന്നെ പുറപ്പെടുവിക്കുമെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു മിക്ക സംസ്ഥാനങ്ങളും എൻ

ആറുമായി ബന്ധപ്പെട്ട വൃവസ്ഥകൾ വിജ്ഞാപനം ചെയ്തിട്ടുണ്ട് രാജ്യത്തെ സാധാരണ താമസക്കാരുടെ രജിസ്റ്ററാണ് എൻ

അസം ഒഴികെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെ ജനസംഖ്യാ കണക്കെടുപ്പിനൊപ്പം ദേശീയ ജനസംഖ്യ രജിസ്റ്റർ നടപ്പാക്കും ദേശീയ പൌരത്വ രജിസ്റ്റർ നേരത്തെ നടപ്പിലാക്കിയതിനാലാണ് അസമിനെ ഒഴിവാക്കുന്നതെന്നും മന്ത്രാലയം അറിയിച്ചു

നിരവധി ഭരണഘടനാ ഭേദഗതികൾ വേണമെന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് രാജി പ്രധാനമന്ത്രി ദിമിത്രി മെദ്വദേവും രാജിവച്ചു പ്രസിഡന്റ് വ്ളാഡിമിർ പൂടിന് മെദ്വദേവ് രാജി സമർപ്പിച്ചതായി ടാസ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു താൻ അധ്യക്ഷനായ ദേശീയ സുരക്ഷാ കൌൺസിലിന്റെ ഉപാധ്യക്ഷനാകാൻ മെദ്വദേവിനോട് പുടിൻ നിർദ്ദേശിച്ചു മണിക്കൂറകൾക്കകം നികുതി സേവന വിഭാഗം മേധാവി മിഖായീൽ മിഷുസ്റ്റിനെ പുടിൻ പ്രധാനമന്ത്രിയായി നിയമിച്ചു പുതിയ മന്ത്രിസഭ രൂപീകരിക്കുന്നതുവരെ ചുമതല നിർവഹിക്കാൻ മെദ്വദേവിനോട് പുടിൻ ആവശ്യപ്പെട്ടു ശക്തമായ പ്രസിഡൻഷ്യൽ സംവിധാനം നിലനിർത്തുന്നതിനൊപ്പം പാർലമെന്റിന്റെ അധികാരം വർധിപ്പിക്കുന്ന ഭരണഘടനാ ഭേദഗതിക്ക് ജനഹിത പരിശോധന നടത്തുമെന്നും പുടിൻ വൃക്തമാക്കി തന്റെ നാലാമത്തെ കാലാവധി പൂർത്തിയാക്കാൻ നാലുവർഷം ബാക്കിനിൽക്കേയാണ് പുടിന്റെ അപ്രതീക്ഷിത നീക്കം

ഒരു മാസം നീളുന്ന ബൃഹത് പ്രചാരണ പരിപാടി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും

കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് റിട്ടയേർഡ് ജഡ്ജി ബിപ്ലബ് കുമാർ ശർമ്മയുടെ നേതൃത്വത്തിൽ അസം കരാർ അന്നുസ്പ്രിച്ച് പതിമ്മൂന്നംഗ സമിതിയെ നിയോഗിച്ചത് അസം സ്വദേശിക്ട്ടുക്ക് നിയമസഭയിലും തദ്ദേശ സ്ഥാപനങ്ങളിലും സംവരണം നൽകുന്നത്രൂ ്സംബന്ധിച്ച് സമിതി ശുപാർശ നൽകും

മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഗവർണർ ആനന്ദി ബെൻ പട്ടേൽ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുക്കും

പ്രതിസന്ധിയിലായ പഞ്ചാബ് മഹാരാഷ്ട്ര സഹകരണ ബാങ്കിന് കമ്പനി നൽകേണ്ട കുടിശ്ശിക വേഗത്തിൽ ഈടാക്കുന്നതിനാണ് നടപടി ഹൈക്കോടതി റിട്ട്യേർഡ് ജഡ്ജി എസ്

ടി എമ്മുകളിലും മാത്രം ഉപയോഗിക്കാവുന്ന രീതിയിൽ ക്രമപ്പെടുത്തണമെന്നും ആർ

ഐ നിർദ്ദേശിച്ചു

ഫാസ്ടാഗ് നിർബീണ്ഡമാക്കിയതിനെ തുടർന്ന് പാലിയേക്കര കുമ്പള ടോൾ പ്ലാസ്കളിൽ ആദ്യ ദിവസമായ ഇന്നലെ വൻ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെട്ടത്

ബൌദ്ധിക സ്വത്തവകാശ സംരക്ഷണം നടപ്പാക്കൽ യുഎസ്ചൈന വ്യാപാര ബന്ധം സന്തുലിതമാക്കൽ ഫലപ്രദമായ തർക്ക പരിഹാരം എന്നിവ വാണിജ്യ ഇടപാടിന്റെ ആദ്യ ഘട്ടത്തിൽ ഉൾപ്പെടുന്നു പരസ്പര വ്യാപാരത്തിന്റെ ഭാവിയിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് ഇതെന്ന് പ്രസിഡന്റ് ഡോണൾഡ് ട്രംപ് പ്രസ്താവനയിൽ പറഞ്ഞു

ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാണിജ്യ ഇടപാടിന്റെ രണ്ടാം ഘട്ടം ഒപ്പുവെച്ചാൽ മാത്രമേ തീരുവ പിൻവലിക്കുകയുള്ളൂവെന്ന് ട്രംപ് പറഞ്ഞു

അടുത്തയാഴ്ച ആരംഭിക്കാൻ സാധ്യതയുള്ള സെനറ്റ് വിചാരണയ്ക്ക് പ്രതിനിധി സ്പീക്കർ നാൻസി പെലോസി മാനേജർമാരെ തെരഞ്ഞെടുത്തു ഇന്റലിജൻസ് സ്ഥിരം സെലക്ട് കമ്മിറ്റി ചെയർമാൻ ആദം ഷിഫിനെ ലീഡ് മാനേജരായി തെരഞ്ഞെടുത്തു സഭയിലെ വോട്ടെടുപ്പിന് ശേഷം പ്രോസിക്യൂട്ടർമാരായ അംഗങ്ങൾ ഇവ സെനറ്റിലേക്ക് എത്തിക്കും

ഔക്ലൻഡിൽ ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ ടോപ് സീഡായ ജോൺപ്പിട്യ്ഴ്സിനെയും മൈക്കൽ വീനസിനെയും അട്ടിമറിച്ചാണ് ഇന്ത്യ ക്ടിവി ്സൂഖ്യത്തിന്റെ മുന്നേറ്റം

ഇന്ത്യയുടെ രോഹൻ ബ്ലൊപ്പണ്ണയും ഫിൻലൻഡിന്റെ ഹെൻറി കോണ്ടിനനും ചേർന്ന സഖ്യവും ക്യൂർട്ടറിൽ എത്തി

മികച്ച റാങ്കിനായി സുനിൽകുമാർ ഹങ്കറിയുടെ വിക്ടർ ലോറിൻസിനെ നേരിടും ഇന്ത്യയുടെ അഷുവും സച്ചിൻ റാണയും വെങ്കല പ്ലേ ഓഫിൽ എത്തി

ഒരു റിപ്പോർട്ട്

പശ്ചിമ ബംഗാളിനെ തോൽപ്പിച്ചാണ് കേരളം കിരീടം സ്വന്തമാക്കിയത്

മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് പ്രിൻ ്സുരക്ഷാ ക്രമീകരണങ്ങളാണ് ശബരിമലയിൽ ഏർപ്പെടുത്തിയിരുന്നത്